ഭാവിപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി കോൺഗ്രസിന്റെ പുതിയ പ്രവർത്തക സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു

സിംഗിൾസിൽ ഇന്ത്യൻ യുവതാരം ലക്ഷ്യാസെന്നിന് സ്വർണ്ണം

ഇന്ത്യക്കാർക്കെല്ലാം പൌരത്വം തെളിയിക്കാൻ അവസരം ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി

മ്യാനുഷികപരമായി മാത്രമെ ഈ വിഷയം കൈകാര്യം ചെയ്യുക്കിട്ടുള്ളൂവെന്നും എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്നും ശ്രീ

പോലീസ് കോൺസ്റ്റബിൾ മൊഹമ്മദ് സലീമിഷായുടെ വധവുമായി ബന്ധമുള്ള തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് ഡി ജി പി ശ്രീനഗറിൽ വാർത്താലേഖകരോട് പറഞ്ഞു മറ്റൊരു സംഭവത്തിൽ കത്വാ ജില്ലയിൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറ്റത്തിന് ശ്രമിച്ചയാളെ ബി

കുപ്പ്വാര ജില്ലയിലും പട്രോളിംഗിൽ ഏർപ്പെട്ടിരുന്ന സൈനികർക്കുനേരെ അജ്ഞാതർ വെടിയുതിർത്തു ഇതിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല

യോട്ടുക്കുതിൽ അദ്ധ്യക്ഷത വഹിച്ച കോൺഗ്രസ്സ് പാർട്ടി അദ്ധ്യക്ഷ്യൻ രാഹുൽ ഗാന്ധി രാജ്യത്തിനായി പോരാടാൻ പ്രവർത്ത്ക്രോട് ആഹ്വാനം ചെയ്തു

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്ത്യ്ക് നിരാശാജനകമാണെന്ന് മുൻ കോൺഗ്രസ്സ് അദ്ധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു

രാഹുൽ ഗാന്ധി അദ്ധ്യക്ഷനായതിനുശേഷം ആദ്യമായാണ് സമിതി പുനസംഘടിപ്പിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി അരുൺ

ദേശീയ പ്രാധാന്യമുള്ള വിഷ്ട്രായ്തിനാൽ സമയം നീട്ടി നൽകാനാകില്ലെന്ന് കേന്ദ്രത്തെ പ്രത്യിനിധികരിച്ച സോളിസിറ്റർ ജനറൽ മനീന്ദർ സിംങിനോട് ചീഫ് ജസ്റ്റിസ് ദ്രീപക് മിശ്ര വ്യക്തമാക്കി

ആദ്യം ഈ ഹർജി പരിഗണിച്ച സുപ്രീംകോടതി മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും സ്കൂൾ കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിന് ആവശ്യമായ ദേശീയ നയം ആറ് മാസത്തിനകം രൂപീകരിക്കാൻ കേന്ദ്രഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു

കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള മൌലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൌണ്ടേഷൻ ഇതിനായി ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു

യുവ ഐ

എസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു പദ്ധതികളുടെ ഫലപ്രദമായ നടത്തിപ്പിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നിർണ്ണായക പങ്കാണുള്ളതെന്ന് ന്യൂഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും വികസനത്തിൽ പങ്കാളികളാക്കുന്ന നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുളള ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനം എന്നതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു

പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സഹാധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സഹോദരി തുടങ്ങിയവർ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് അന്വേഷണ ഏജൻസി ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ദശലക്ഷക്കണക്കിനു രൂപ വൃാജ അക്കൌണ്ടുകളിൽ വിവിധ ബാങ്കുകളിലായി നിക്ഷേപിച്ചിട്ടുള്ളതായാണ് കേസ്

അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് ബുധനാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്

റോഡ് കപ്പൽ റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

സി ടി വി റിപ്പോർട്ട് ചെയ്തു

ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ നഗരത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു

സൈനികകേന്ദ്രമായ ബറവോ ആക്രമിച്ച ബോക്കോ ഹറാം ഗ്രൂപ്പിൽപ്പെട്ടവരെയാണ് വധിച്ചത്

സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിില്പനിൽക്കുകയാണ്

ടോപ്സീഡും ലോക ഒന്നാം നമ്പറുമായ കുൻ ലാവുത് വിറ്റിഡ്സാനെയാണ് ലക്ഷ്യ നേരിട്ടുള്ള സൈറ്റുകൾക്ക് പരാജയപ്പെടുത്തിയത്

സിന്ധു സമീർവർമ്മ എന്നിവരാണ് മുൻപ് ഇന്ത്യക്കായി സ്വർണ്ണം നേടിയിട്ടുള്ളത് മുൻ ലോക ഒന്നാം നമ്പറായ ലക്ഷ്യ ഏഷ്യാ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ നേരത്തെ വെങ്കലം സ്വന്തമാക്കിയിരുന്നു

കായികരംഗത്തെ പരിപോഷിപ്പിക്കുന്ന പദ്ധതിയാണ് ഖേലോ ഇന്ത്യാ ഇന്ത്യൻ കായികമേഖലയിൽ സമ്പൂർണ്ണ മാറ്റം വരുമെന്ന് യുവജനക്ഷേമ കായിക വകുപ്പ് മുന്തി രാജ് വർധൻ രാത്തോറ് പറഞ്ഞു ക്യാച്ച് ദം യെങ്ങ് എന്നത് കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല ഗവൺമെന്റിന്റെ പ്രവർത്തികളിലൂടെ അത് പ്രകടമാകുകയും ചെയ്യുകയാളുണ്ടുന്ന് മന്ത്രി പറഞ്ഞു

നിലവിൽ ഒന്നരകോടി രൂപ വരെ വിറ്റ് വരവ് ഉള്ള കമ്പനികൾക്കാണ് മൂന്നുമാസത്തിലൊരിക്കൽ റിട്ടേൺ ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ലഘൂകരിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്ന് ഫിക്കി പ്രസിഡന്റ് രാഷേഷ് ഷായും പറഞ്ഞു ചെറുതും വലുതുമായ നികുതിദായകർക്ക് ആശ്വാസകരമായ വാർത്തയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ചേർന്ന ജി

ടി കൌൺസിൽ യോഗമാണ് അഞ്ച് കോടിരൂപവരെ വിറ്റ് വരവ് ഉള്ള കമ്പനികൾക്ക് മൂന്നുമാസത്തിലൊരിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന തീരുമാനമെടുത്തത്